ശബരിമല വികസനകാര്യത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളെ കബ ളിപ്പിക്കുകയാണെന്ന് എ

സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി വട്ടിയൂർക്കാവിൽ എൻ

ഐ എം സംസ്ഥാന സെക്ര ട്ടറി കോടിയേരി ബാലകൃഷ്ണൻ

എസിന്റെ ശരിദൂര നിലപാട് എൻ

പി നേതാവ് കുമ്മനം രാജശേ ഖരൻ

നിക്ഷേപകർക്ക് ഇന്ത്യയേക്കാൾ മികച്ച ഒരിടം ലോകത്ത് എവി ടെയും കണ്ടെത്താനാവില്ലെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാസീതാ രാമൻ അഭിപ്രായപ്പെട്ടു

ജനാധിപത്യ സൌഹൃദവും മൂലധന ശക്തി യുള്ളതുമാണ് ഇന്ത്യയിലെ അന്തരീക്ഷമെന്നും അവർ പറഞ്ഞു സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ഗവൺമെന്റ് നിരന്തര ശ്രമത്തിലാണെന്നും നിർമ്മലാ സീതാരാമൻ അറിയിച്ചു അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥകളിലൊന്നാണ് ഇന്ത്യ യെന്നും ഏറ്റവും മികച്ച വിദഗ്ദ്ധ തൊഴിലാളികൾ രാജ്യത്തു ണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു

ഡി എസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷനും മുൻ പ്രധാനമന്ത്രിയുമായ എച്ച്

ഇതുസംബന്ധിച്ച് പാർട്ടിക്കിടയിൽ ഭിന്നതയില്ലെന്ന് അദ്ദേഹം ബെങ്കലൂരുവിൽ മാധ്യമങ്ങളോട് പറ ഞ്ഞു

എ സ്ഥാനത്തുനിന്ന് അയോഗ്യരാക്കിയ മൂന്ന് ജെ ഡി എസ് വിമതരെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

എ മാരെ അയോഗ്യരാക്കിയ സ്പീക്ക റുടെ നടപടി സുപ്രീംകോടതി അംഗീകരിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഇല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ലെന്നും ദേവഗൌഡ പറഞ്ഞു

ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് നിയോജക മണ്ഡലങ്ങ ളിലെ അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ചതായി മുഖ്യതെരഞ്ഞെ ടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു സപ്തിമെന്ററി പട്ടിക കൂടി ഉൾപ്പെടുത്തിയാണ് വോട്ടർപട്ടിക തയാറാക്കിയത്

മുഖ്യ മന്ത്രി പിണ റായി വിജ യൻ ശബ രി മ ല യി ലെ വികസനകാര്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് മുൻമു ഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി ശബരിമല വികസന കാര്യ ത്തിൽ മുഖ്യമന്ത്രി നിരത്തുന്ന വാദങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ശബരിമല വികസനത്തിന് ബജ റ്റിൽ പ്രഖ്യാപിച്ച തുകയുടെ പകുതി പോലും കൈമാറിയിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു ശബരിമലയിൽ ഒരു വികസനവും നട ത്തിയിട്ടില്ല പ്രഖ്യാപനങ്ങൾ മാത്രമാണ് നടത്തുന്നത് ശബരിമല യിലെ വികസനം സംബന്ധിച്ച യഥാർത്ഥ കണക്ക് ഇന്ന് പുറ ത്തു വിടു മെന്നും തന്റെ വാദത്തിന് മുഖ്യ മന്ത്രി മറു പടി നൽകട്ടെയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു വട്ടിയൂർക്കാവിൽ എൻ

എസ് വ്യാപകമായി ജാതി പറഞ്ഞ് വോട്ടുതേടുന്നുണ്ടെന്ന് സി

എം സംസ്ഥാന സെക്ര ട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി ഇത് ശരിയായ രീതിയല്ലെന്നും മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണക്ക് പരാതി നൽകുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞു ഇതു മായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നടത്തിയ നിരീക്ഷണം ശരിയായിരുന്നുവെന്ന് കോടിയേരി അഭിപ്രായപ്പെട്ടു ശബരിമല വിഷയത്തിൽ എൻ

എസ് യു

എഫിന് വോട്ട് ചോദിക്കു മെന്ന് വിശ്വ സിക്കു ന്നി ലെല്ല ന്ന് ബി

പി നേതാവ് കുമ്മനം രാജ ശേഖരൻ പറഞ്ഞു

എ യെ എൻ

എസ് സംശയിക്കരുതെന്നും അവരുടെ ശരിദൂര നിലപാട് എൻ

എ വിരുദ്ധമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കാസർകോട്ട് പറഞ്ഞു തെറ്റിദ്ധാരണയുണ്ടാക്കി വോട്ട് നേടാൻ യു

എഫ് നടത്തുന്ന ശ്രമം ബാലിശമാണെന്നും കുമ്മ നം കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ പരസ്യ നിലപാട് സ്വീകരിക്കുന്ന സമുദായ സംഘടനകളെ നിയന്ത്രിക്കുന്നത് ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം പി പറഞ്ഞു എല്ലാ സമുദായ സംഘ ടനകളെയും നിരോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കി ല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു തെരഞ്ഞെ ടുപ്പ് കമ്മീഷന്റെ നോട്ടീസിന് സംഘടനകൾ മറുപടി പറയുമെന്നും എൻ

എസിന്റെ നിലപാട് യു

എഫിന് കരുത്ത് പകരു മെന്നും മുരളീധരൻ വ്യക്തമാക്കി മന്ത്രി കെ ടി ജലീലിനെതിരായ മാർക്ക്ദാന വിവാദത്തിൽ മുഖ്യ മന്ത്രി പിണറായി വിജയൻ മൌനം വെടിയണമെന്ന് പ്രതിപക്ഷനേ താവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു മന്ത്രിക്കെതിരെ അന്വേഷണത്തിന് തയ്യാറാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്ക ണമെന്ന് അദ്ദേഹം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറ ഞ്ഞു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം ജി സർവകലാശാല നടത്തിയ അദാലത്തിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് ചെന്നിത്തല പറഞ്ഞു പച്ചക്കള്ളം പറഞ്ഞ് മന്ത്രി എന്തൊക്കെയോ മറച്ചുവെക്കുകയാണെന്നും സർവ കലാശാല സിൻഡിക്കേറ്റിന് മാർക്ക് ദാനത്തിന് എന്തധികാരമാ ണുള്ളതെന്നും ചെന്നിത്തല ചോദിച്ചു കോഴിക്കോട് കൂടത്തായ് കേസിൽ നിർണായകമായ ശാസ്ത്രീയ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഡി എൻ എ പരിശോധനക്ക് ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരിച്ചു മരിച്ച റോയ് തോമസിന്റെ സഹോദരങ്ങളായ റോജോ റെഞ്ചി റോയ് തോമസിന്റെ മക്കൾ എന്നിവരിൽ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളജ് ഫോറൻസിക് വിഭാഗം അൽപ്പംമുമ്പ് സാമ്പി ളുകൾ ശേഖരിച്ചത് കല്ലറ തുറന്ന് ശേഖരിച്ച മൃതദേഹ വശിഷ്ടങ്ങളുമായി ഡി എൻ എ താരതമ്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പരിശോധന പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ റിമാന്റിൽ കഴിയുന്ന പൊതുമരാമത്ത് വകുപ്പ് മുൻ സെക്രട്ടറി ടി

മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് റിമാന്റ് നീട്ടിയത്

ഏഷ്യൻ അറബ് വംശജരാണ് മരിച്ചതെന്നാണ് സൂചന

മദീനയിൽ നിന്ന് മക്കയി ലേക്ക് പോകുകയായിരുന്ന ബസ് അപകടം നടന്നയുടൻ പൂർണ മായും കത്തിനശിച്ചു

പൊള്ളലേറ്റ അഞ്ചുപേരെ ആശുപത്രികളിൽ പ്രവേശി പ്പിച്ചു ഇതിൽ മൂന്നുപേരുടെ നില ഗുരുതരമാണ് ഉംറ തീർത്ഥാട കരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സംശയിക്കുന്നു

ദുരന്തത്തിൽ വേദനിക്കുന്നതായും പരിക്ക് പറ്റിയവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി ട്വിറ്റ റിൽ പറഞ്ഞു അയോധ്യ ഭൂമിതർക്കക്കേസ് വിധിപറയാനായി മാറ്റിയതിന് പിന്നാലെ ഭരണഘടനാബെഞ്ചിലെ ജഡ്ജിമാർ ഇന്ന് യോഗം ചേരും

അയോധ്യ പ്രശ്നത്തിലെ മധ്യസ്ഥ ചർച്ചകൾ വിജയംകണ്ടെന്ന് കാണിച്ച് ജസ്റ്റിസ് ഇബ്രാഹിം ഖലീഫുള്ള അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് ജഡ്ജിമാർ പരിശോധിച്ചേക്കും ഈ റിപ്പോർട്ട് ഇന്നലെയാണ് കോടതിയിൽ നൽകിയത് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒരാഴ്ചത്തെ സന്ദർശനത്തി നായി ഫിലിപ്പീൻസ് ജപ്പാൻ എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരി ച്ചു ഫിലിപ്പീൻസ് പ്രസിഡണ്ടുമായി മനിലയിൽ അദ്ദേഹം ചർച്ച നടത്തും ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം ബിസിനസ് മീറ്റിലും പങ്കെടുക്കും

നെതർലാന്റ് രാജാവ് വില്യം അലക്സാണ്ടറും രാജ്ഞി മാക്സിമയും രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്ന് കൊച്ചിയിലെത്തും ഉച്ചയ്ക്ക് കൊച്ചി രാജ്യാന്തര വിമാനത്താവള ത്തിൽ രാജ ദമ്പതിമാർക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും ഗവർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി സി

ഡച്ച് പാലസ് സന്ദർശിക്കുന്ന രാജ ദമ്പതികൾ ഡച്ച് കമ്പനിയായ നെഡ് സ്പൈസിലെത്തി പ്രവർത്തനം വീക്ഷിക്കും തുടർന്ന് വെല്ലി ങ്ടൺ ഐലന്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അവർ കൂടിക്കാഴ്ച നടത്തും നാളെ രാവിലെ ആലപ്പുഴയിൽ എത്തുന്ന ഇരുവരും ഹൌസ് ബോട്ട് യാത്ര നടത്തും കൊച്ചിയിൽ തിരിച്ചെത്തിയ ശേഷം ഡച്ച് മാധ്യമങ്ങളുമായി രാജദമ്പതികൾ സംസാരിക്കും വൈകിട്ട് ഏഴ രയ്ക്ക് പ്രത്യേക വിമാനത്തിൽ ആംസ്റ്റർ ഡാമിലേക്ക് മടങ്ങും

തിരുവനന്തപുരത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷത യിൽ ചേർന്ന പദ്ധതി അവലോകന യോഗത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്

ഇന്ത്യ പാക്കിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾ പുനരാരംഭിക്കു ന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായിരിക്കും തീരുമാനിക്കുകയെന്ന് ബി

ഐ നിയുക്ത പ്രസിഡണ്ട് സൌരവ് ഗാംഗുലി പറഞ്ഞു ഇത്തരം കാര്യ ങ്ങളിൽ നയപരമായ തീരുമാനം ഗവൺമെന്റുകളുടേതാണെന്ന് അദ്ദേഹം കൊൽക്കത്തയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം ഉപേക്ഷിക്കുക കിട്ടാക്കടം തിരിച്ചുപിടിക്കുന്നത് ഉറപ്പാക്കുക വീഴ്ച വരുത്തുന്നവർക്കെ തിരെകർശന നടപടി സ്വീകരിക്കുക ബാങ്കുകളിലെ ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സമര ത്തിന് പിന്തുണ നൽകുമെന്ന് കെ ഐ

സി അറിയിച്ചു